തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട്

ത രാജ്യത്ത് സാക്ഷരതാ നിരക്കിൽ കേരളം ഒന്നാം സ്ഥാനത്ത് തുടരുന്നു

വാർത്തകൾ വിശദമായി തെക്ക് കിഴക്ക് അറബിക്കടലിലും അതിനോട് ചേർന്ന മധ്യ കിഴക്ക് അറബിക്കടലിലുമായി രൂപപ്പെട്ട ന്യൂനമർദ്ദം സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു കനത്ത മഴ കണക്കിലെടുത്ത് ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു

മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദേശിച്ചിട്ടുണ്ട്

പൊന്നാനി കായംകുളം മുനമ്പം അഴീക്കോട് ഹാർബറുകളിൽ നിന്ന് പോയ ബോട്ടുകളാണ് കാണാതായതെന്നും കോസ്റ്റ് ഗാർഡ് അറിയിച്ചു രുര കടൽക്ഷോഭത്തിലും കാറ്റിലും കോളിലും മത്സ്യ ബന്ധന വള്ളങ്ങളും ഉപകരണങ്ങളും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഗവൺമെന്റ് സഹായിക്കുമെന്ന് മന്ത്രി ടി എം തോമസ് ഐസക് പ്രസ്താവനയിൽ പറഞ്ഞു കടൽ ക്ഷോഭത്തിൽ നിന്ന് കരയെ സംരക്ഷിക്കാൻ ഗ്രോയിനുകൾ സ്ഥാപിക്കുന്ന ബൃഹത്തായ പദ്ധതിക്കും ആലപ്പുഴയിൽ തുടക്കമായതായും മന്ത്രി പറഞ്ഞു രുദ മഴക്കെടുതിയിൽ കൊല്ലം ജില്ലയിൽ ഏഴ് വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണമായും തകർന്നു

കൊല്ലം താലൂക്കിലാണ് മഴ കൂടുതൽ നാശം വിതച്ചത്

തോമസ് ഐസകിന് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരായ ഇ പി ജയരാജൻ ടി പി രാമകൃഷ്ണൻ കെ കെ ശൈലജ എന്നിവരും സ്വയം നിരീക്ഷണത്തിൽ പോയ സാഹചര്യത്തിലാണ് മന്ത്രിസഭാ യോഗം മാറ്റിയത് ദേഴ കണ്ണൂർ ജില്ലയിൽ കോവിഡ് രോഗ വ്യാപനം തീവ്രമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്തവും പുലർത്തണമെന്ന് ജില്ല കലക്ടർ ടി

പലയിടത്തും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തതായി ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഒരു വിട്ടു വീഴ്ചയും അനുവദിക്കില്ലെന്നും കർശന നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും അവർ അറിയിച്ചു രുമ കോവിഡ് വ്യാപനം കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിലെ മാലൂർ പഞ്ചായത്ത് ഒരാഴ്ചത്തേക്ക് അടച്ചിടും

രുര നാാട്ടികയിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ നാളെ വൈകീട്ട് മൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി എ

ഹൈക്കോടതി ജില്ലാ കോടതി എം

ടി കോടതി സബ് കോടതി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവയിൽ നിലവിലെ കേസുകളും കോടതിയിൽ എത്താത്ത തർക്കങ്ങളും അദാലത്തിൽ പരിഗണിക്കും രുര കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പ്രായമായവർക്ക് മാസ്കുകളും സാനിറ്റൈസറുകളും ലഭ്യമാക്കണമെന്ന ഹർജിയിൽ പ്രതികരണം അറിയിക്കാൻ സംസ്ഥാനങ്ങൾക്ക് സുപ്രീംകോടതി നാലാഴ്ച കൂടി സമയം അനുവദിച്ചു പ്രായമായ എല്ലാ അർഹരായവർക്കും ആവശ്യമായ മരുന്നുകളും മാസ്ക്കുകളും സാനിറ്റൈസറുകളും മറ്റു അവശ്യ വസ്തുക്കളും നൽകണമെന്ന് കഴിഞ്ഞ മാസം നാലിന് ജസ്റ്റിസ് അശോക് ഭൂഷൺ നേതൃത്വം നൽകുന്ന ബെഞ്ച് നിർദേശം നൽകിയിരുന്നു

രുദ ഇന്ന് ലോക സാക്ഷരതാ ദിനം

ആഗോളതലത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാനാന്യം ബോധ്യപ്പെടുത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം സാക്ഷര അധ്യയനം അധ്യാപനം കോവിഡ് പ്രതിസന്ധിയിലും അതിനുശേഷവും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം രുര രാജ്യത്ത് സാക്ഷരതാ നിരക്കിൽ കേരളം ഒന്നാം സ്ഥാനത്ത് തുടരുന്നു

രുഭ ലോക സാക്ഷരതാ ദിനത്തോട് അനുബന്ധിച്ച് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിലെ ഹാളിന് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപന സ്മാരക ഹാൾ എന്ന് നാമകരണം ചെയ്യും

സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം സംബന്ധിച്ച സ്മരണ നിലനിർത്താനും റഫറൻസിനും ഹാൾ പ്രയോജനപ്പെടുത്തും രുദ ഭക്ഷ്യകിറ്റ് വാങ്ങാത്തവർക്ക് റേഷൻ ലഭിക്കില്ലെന്ന പ്രചാരണം തെറ്റാണെന്ന് ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു അനർഹരെ ഒഴിവാക്കി അർഹരായവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താനാവുമോയെന്ന് പരിശോധിക്കാൻ ഗവൺമെന്റ് നടത്തിയ നീക്കം തെറ്റായി പ്രചരിപ്പിക്കപ്പെട്ടതാണെന്ന് അറിയിപ്പിൽ പറയുന്നു സംസ്ഥാനത്തെ മുപ്പതിനായിരത്തിലേറെ റേഷൻ കാർഡ് ഉടമകൾ കഴിഞ്ഞ ആറ് മാസമായി തുടർച്ചയായി റേഷൻ വാങ്ങാത്തവരും സൌജന്യ ഭക്ഷ്യകിറ്റ് വാങ്ങാത്തവരുമാണ് ഇവരുടെ മുൻഗണനാ പദവിയുടെ അർഹത പരിശോധിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് മുൻഗണനാ പദവി ഉണ്ടായിട്ടും അർഹതപ്പെട്ട വിഹിതം വാങ്ങാതെ ലാപ്സാക്കുന്നത് വെയിറ്റിംഗ് ലിസ്റ്റിലെ കുടുംബങ്ങളോടു കാട്ടുന്ന അനീതിയാണെന്നും ഇവരുടെ വിശദാംശങ്ങളാണ് പരിശോധിക്കുന്നതെന്നും ഓഫീസ് വ്യക്തമാക്കി റേഷനും അതിജീവന കിറ്റും വാങ്ങാത്തവരുടെ പട്ടിക എല്ലാ റേഷൻ വില്ലേജ് ഓഫീസുകളിലും തദ്ദേശസ്വയംഭരണ കടകളിലും സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കും റേഷൻ വാങ്ങാത്ത കാർഡ് ഉടമകൾക്ക് നോട്ടീസ് നൽകി അവർക്ക് പറയാനുള്ളത് കണക്കിലെടുത്തു മാത്രമേ തീരുമാനമെടുക്കൂയെന്നും ഭക്ഷ്യ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു

സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദ്ദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേരി തലശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ ജോർജ്ജ് ഞരളക്കാട്ട് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ താഴത്ത് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ആൻഡ്രൂസ് ശുശ്രൂഷകൾ

രേര ഹൃദയ ശസ്ത്രക്രിയകളുടെ ഫലപ്രാപ്തി പരിശോധിച്ച് ഉറപ്പു വരുത്തുന്നതിന് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ ചെലവു കുറഞ്ഞതും ലളിതവുമായ ബ്ലഡ് ഫ്ളോ മീറ്റർ വികസിപ്പിച്ചു ഹൃദയ ശസ്ത്രക്രിയകളുടെ വിജയം നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകമായ രക്തപ്രവാഹ നിരക്ക് മനസിലാക്കുന്നതിന് പൂർണ്ണമായും ഇറക്കുമതി ചെയ്യുന്ന ബ്ലഡ് ഫ്ളോ മീറ്ററുകളെയാണ് രാജ്യം ആശ്രയിക്കുന്നത്

രുമ കാസർകോട് ജില്ലയിലെ ആരോഗ്യമേഖല മെച്ചപ്പെടുത്തുന്നതിന് വിവിധ പദ്ധതികൾ വഴി അടിസ്ഥാന സൌകര്യ വികസനമടക്കം പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ ചെറുവത്തൂർ വി വി സ്മാരക സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി